സംസ്ഥാനത്ത് മൂന്ന് ബ്രൂവറികൾക്ക് അംഗീകാരം നൽകിയത് സംബന്ധിച്ച് പ്രതിപക്ഷനേതാവ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പി ക്കുകയാണെന്ന് മുഖ്യമന്ത്രി

ശബരിമല സ്ത്രീപ്രവേശന കാര്യത്തിൽ ഗവൺമെന്റ് റിവ്യൂ ഹർജി കൊടുക്കില്ലെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി ബാലഭാസ്കറിന് കലാകേരളത്തിന്റെ യാത്രാമൊഴി

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ഇന്ന് ഡൽഹി ഡൈനാമോസ് പൂനെ സിറ്റി എഫ് സിയെ നേരിടും

കേന്ദ്രസഹായവും വായ്പയും കൊണ്ട് മാത്രം കേരളത്തിനുണ്ടായ നഷ്ടം പരിഹരിക്കാനാവില്ല

ഈ സാഹചര്യത്തിൽ സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നും സംഭാവനയായി വലിയൊരു തുക സമാഹരിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

നവകേരളത്തിന്റെ രൂപകൽപ്പന കെ

ജി യെ ഏൽപ്പിച്ചിട്ടില്ലെന്നും ആവശ്യമായ അവസരങ്ങളിൽ അവരുടെ ഉപദേശം മാത്രമാണ് സംസ്ഥാനം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് മൂന്ന് ബ്രൂവറികൾക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയത് സംബന്ധിച്ച് പ്രതിപക്ഷനേതാവ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു ഇക്കാര്യത്തിൽ പ്രതിപക്ഷനേതാവിന്റേത് അടിസ്ഥാന രഹിതമായ സംശയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് മദ്യോൽപ്പാദനകേന്ദ്രത്തിനാണ് അനുമതി നൽകിയത് അവിടെ മദ്യ വിൽപ്പനയില്ല ബിവറേജസ് കോർപ്പറേഷൻ വഴി മാത്രമാണ് മദ്യം വിതരണം ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ പുതിയ ബ്രൂവറികൾ മദ്യമൊഴുക്കും എന്ന ആരോപണം അടിസ്ഥാന രഹിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

കേരളത്തിൽതന്നെ ഉണ്ടാക്കുന്ന മദ്യം ബിവറേജസ് കോർപ്പറേഷൻ വാങ്ങുമ്പോൾ സംസ്ഥാനത്തിന് കൂടുതൽ നികുതി വരുമാനം ഉണ്ടാകും

ഇതിനുമുമ്പ് ഒരിക്കലും പത്രപ്പരസൃം നൽകി ബ്രൂവറികൾക്കോ മദ്യനിർമ്മാണ ശാലകൾക്കോ ഒരു ഗവൺമെന്റും അപേക്ഷ ക്ഷണിച്ചിട്ടില്ല അതാത് കാലം ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് അനുമതിയും വിശദ പരിശോധനകൾക്കുശേഷം ലൈസൻസും നൽകുന്ന രീതിയാണ് അനുവർത്തിക്കുന്നത്

മദ്യോപയോഗം കുറയ്ക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടലു കളുണ്ടാകും

ഇതിനുപുറമെ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ മാതൃകാ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ശബരിമലയിലെ സ്ത്രീപ്രവേശന കാര്യത്തിൽ സുപ്രീംകോടതി ഉത്തരവിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുക മാത്രമാണ് ഗവൺമെന്റിന് ചെയ്യാവുന്ന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സ്ത്രീകൾക്ക് സന്നിധാനത്ത് ടോയ്ലറ്റ് സൌകര്യങ്ങളും താമസ സൌകര്യവും ലഭ്യമാക്കാൻ ഗവൺമെന്റ് നടപടിയെടുക്കും എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് സുപ്രീംകോടതി സ്ത്രീകൾക്ക് ശബരിമലയിൽ അനുമതി നൽകിയത് കോടതി വിധിക്കെതിരെ റിവ്യൂ ഹർജി കൊടുക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതുസംബന്ധിച്ച് ദേവസം ബോർഡ് പ്രസിഡണ്ട് പറഞ്ഞത് ഗവൺമെന്റിന്റേയോ ദേവസ്വം ബോർഡിന്റെയോ നിലപാടല്ലെന്നും പിണറായി അറിയിച്ചു ശബരിമലയിലെ സ്ത്രീപ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയ്ക്കുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും ശബരിമലയിൽ സ്ത്രീകൾക്കായി ഏർപ്പെടുത്തേണ്ട അധിക സൌകര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുന്ന കാര്യവും യോഗം ചർച്ചചെയ്തേക്കും വയലിനിൽ വിസ്മയം സൃഷ്ടിച്ച യുവ സംഗീത ജ്ഞനും സംഗീത സംവിധായകനുമായ ബാലഭാസ്കറിന് കലാകേരളം വിട നൽകി

സംസ്ഥാന ഗവൺമെന്റിനുവേണ്ടി മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ അന്തിമോപചാ രമർപ്പിക്കാനെത്തി പൊതുദർശനത്തിനുവെച്ച തിരുമലയിലെ വസതിയിലും ശാന്തികവാടത്തിലും ആയിരക്കണക്കിന് പേരാണ് അന്തരിച്ച സംഗീതകാരന് അന്തിമോപചാരമർപ്പി ക്കാനെത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് കാറപകടത്തെ തുടർന്ന് ചികിത്സയിലാ യിരുന്ന ബാലഭാസ്കർ ഇന്നലെ പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത് മകൾ തേജസ്വിനി ബാല സംഭവസ്ഥലത്തുതന്നെ മരിച്ചു ഭാരൃ ലക്ഷ്മി സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ്

രാവിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചട ങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജസ്റ്റിസ് ദീപക് മിശ്ര ഇന്നലെ വിരമിച്ച ഒഴി വിലാണ് സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയായ ഗൊഗോയി ചീഫ് ജസ്റ്റിസായത് അസം സ്വദേശിയായ രഞ്ജൻ ഗൊഗോയ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യമായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആളാണ്

ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാര മായ ചാമ്പ്യൻസ് ഓഫ് ദ ഇയർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു ന്യൂഡൽഹിയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ഐക്യ രാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്സിൽ നിന്നാണ് പ്രധാനമന്ത്രി പുരസ്കാരം ഏറ്റുവാങ്ങിയത്

സ്ഥായിയായ വികസനത്തിനും കാലാവസ്ഥാ വ്യതിയാന ത്തിനെതിരായും നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി യതിനാണ് ഇരുനേതാക്കളെയും അവാർഡിന് തെരഞ്ഞെടുത്തത് കന്യാസ്ത്രീ പീഡനക്കേസിൽ ജലന്ധർ മുൻബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് ജാമ്യം ലഭിച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന വാദിഭാഗത്തിന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചു

തൃശൂരിൽ ബ്രൂവറി അനുവദിച്ചതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും തൃശൂർ മലയാള വേദിയാണ് ഹർജി നൽകിയത് ചട്ടങ്ങൾ പാലിക്കാതെയും പാരിസ്ഥിതിക അനുമതി ലഭിക്കാതെ യുമാണ് ബ്രൂവറിയ്ക്ക് അനുമതി നൽകിയതെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഡൽഹി ഡൈനാമോസ് പൂനെ സിറ്റി എഫ് സിയെ നേരിടും

ഇന്നലെ ജംഷഡ്പൂർ എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തിയാണ് പുതിയ സീസണിൽ വിജയത്തുടക്കമിട്ടത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാതല പ്രവർത്തനങ്ങളുടെ അവലോകനം മന്ത്രി പ്രൊഫ സി രവീന്ദ്രനാഥിന്റെ സാന്നിധ്യത്തിൽ നാളെ കോഴിക്കോട്ട് നടക്കും നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർസെക്കണ്ടറി സ്കൂളിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും കണ്ണൂർ നഗരത്തിൽ നിന്ന് മയക്കുമരുന്നുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി

അസാധുവാക്കിയ തുർക്കി കറൻസിയുമായി മലപ്പുറത്ത് അഞ്ചു പേർ പൊലീസിന്റെ പിടിയിലായി കാസർകോട് മലപ്പുറം സ്വദേശികളാണ് ഒമ്പതരക്കോടിയിലേറെ ലിറയുടെ കറൻസിയുമായി നിലമ്പൂർ പൊലീസിന്റെ പിടിയിലായത് പയ്യോളിയിൽ സി

എം നേതാവ് സുരേഷ് ചങ്ങാടത്തിന്റെയും യുവമോർച്ച നേതാവ് വി കെ നിതിന്റെയും വീടുകൾക്കു നേരെയാണ് പുലർച്ചെ ആക്രമണ മുണ്ടായത് കണ്ണൂർ ജില്ലയിലെ തോട്ടട ഇ

ഐ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാ വശ്യപ്പെട്ട് സി ഐ

തുടർന്ന് നടന്ന ധർണ സി ഐ

യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു അമ്പതോളം പേരെ കിടത്തി ചികിത്സിക്കാൻ സൌകര്യമുണ്ടായിട്ടും ആവശ്യമായ നടപടി സ്വീകരി ക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സി കൃഷ്ണൻ എം

ലോക ബഹിരാകാശവാരാചരണം സംസ്ഥാനതല പരിപാടികൾക്ക് കോഴിക്കോട്ട് തുടക്കമായി

ഐ കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറി ഐ വി ശശാങ്കൻ നിര്യാതനായി ഓൾ ഇന്ത്യ കോക്കനട്ട് ഗ്രോവേഴ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കേരള കർഷക സംഘം സംസ്ഥാന പ്രസിഡണ്ട് സി

ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചുവരികയായിരുന്നു

സംസ്കാരം ഇന്നുവൈകിട്ട് രവിപുരം ശ്മശാനത്തിൽ നടക്കും പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വടകരയിൽ നടക്കും

ടി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മന്ത്രി എ

പുനത്തിലിന്റെ ഒന്നാം ചരമവാർഷികാ ചരണത്തിന്റെ ഭാഗമായി പുനത്തിൽ കാലവും ദേശവും എന്ന വിഷയത്തിൽ സെമിനാറും ഇതോടൊപ്പം നടക്കും കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ സ്തനാർബുദ പരിശോധനയ്ക്ക് വളണ്ടിയർമാരുടെ പരിശീലനം പൂർത്തിയായി ലോകാരോഗ്യസംഘടന ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ തുടങ്ങിയവയുടെ സഹകരണത്തോടെ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയാണ് രണ്ടരലക്ഷം പേരിൽ പരിശോധനയ്ക്കായി പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്